ജി നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കി പ്രിയങ്കാഗാന്ധി യുടെ വസതിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന പരാതിയിൽ ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടതായി ആഭ്യന്തര മന്ത്രി അമിത്ഷാ അറിയിച്ചു

ഗോത്രസമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ മുതലെടുത്ത് തീവ്ര ആശയങ്ങൾ പിടി മുറുക്കുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കണമെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മഹാപ്രളയം കഴിഞ്ഞ് ഒന്നര വർഷത്തിനകും ക്രേളത്തിന്റെ പുനർനിർമ്മാണം സാധ്യമായതായി മന്ത്രി ഇ ചന്ദ്രശേഖരൻ കാഠ്മണ്ഡു സൌത്ത് ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യ രണ്ടാം സ്ഥാനത്ത് ദേശീയ സ്കൂൾ അത്ലറ്റിക് ചാംപ്യൻഷിപ്പ് പഞ്ചാബിൽ ഇന്ന് ആരംഭിക്കും

ജി നിയമ ഭേദഗതി ബിൽ പാർലമെന്റ് പാസ്സാക്കി

ജി സുരക്ഷ പ്രധാനമന്ത്രിക്കും ഒരു നിശ്ചിത കാലയളവിൽ മുൻ പ്രധാനമന്ത്രിമാർക്കും മാത്ര മായി പരിമിതപ്പെടുത്താൻ കൊണ്ടുവന്ന ഭേദഗതി ശബ്ദ വോട്ടോടെ രാജ്യസഭ അംഗീകരിച്ചു നേരത്തെ ബിൽ ലോക്സഭ പാസ്സാക്കിയിരുന്നു പ്രധാനമന്ത്രിക്കും അദ്ദേഹത്തോടൊപ്പം ഔദ്യോഗിക വസതിയിൽ താമസിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കും അഞ്ചു വർഷത്തേക്ക് മുൻ പ്രധാനമന്ത്രിമാർക്കും ഒപ്പം താമസിക്കുന്ന അടുത്ത ബന്ധുക്കൾക്കും മാത്രമായിരിക്കും ഇനി മുതൽ എസ്

ജി സുരക്ഷ

പ്രിയങ്കാഗാന്ധി വാധ്രയുടെ വസതിയിൽ സുരക്ഷാ വീഴ്ചയുണ്ടായെന്ന പരാതിയെ കുറിച്ച് ഉന്നതതല അന്വേ ഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും മൂന്ന് ഓഫീസർമാരെ സസ്പെൻഡ് ചെയ്ത തായും ആഭ്യന്തര മന്ത്രി അറിയിച്ചു വോട്ടിങ്ങിന് തൊട്ടുമുമ്പായി കോൺഗ്രസ് സിപിഐ ഡി

കെ അംഗങ്ങൾ സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി കേന്ദ്രഭരണ പ്രദേശങ്ങളായ ദാമൻ ദിയുവിനെയും ദാദ്ര നഗർഹവല്ലിയെയും ലയിപ്പിച്ച് ഒറ്റ കേന്ദ്ര ഭരണ പ്രദേശമാക്കുന്ന ബിൽ പാർലമെന്റ് അംഗീകരിച്ചു ലോക്സഭ നേരത്തെ അംഗീകരിച്ച ബിൽ ശബ്ദ വോട്ടോടെ രാജ്യസഭ ഇന്നലെ പാസ്സാക്കുകയായിരുന്നു ദാദ്ര നഗർഹാവല്ലി ദാമൻ ദിയു എന്നായിരിക്കും പുതിയ കേന്ദ്ര ഭരണ പ്രദേശത്തിന്റെ പേരെന്ന് ആഭ്യന്തര സഹമന്ത്രി ജി

ഇതോടെ രാജ്യത്തെ കേന്ദ്രഭരണ പ്രദേശങ്ങളുടെ എണ്ണം എട്ടായി കുറയും ലക്ഷദ്വീപിന് സംസ്ഥാന പദവി നൽകണമെന്ന് കെ കെരാഗേഷും ബിനോയ് വിശ്വവും ചർച്ചക്കിടെ ആവശ്യപ്പെട്ടു

എൽ ചെയർമാനും മാനേജിങ് ഡയറക്ടറുമായ ആർ

മൊത്തം ജീവനക്കാരുടെ പകു തിയിലധികം വരും ഇതെന്ന് അദ്ദേഹം പറഞ്ഞു ആറായിരം ജീവനക്കാർ വിര മിച്ചതിന് പുറമെയാണിതെന്നും അദ്ദേഹം പറഞ്ഞു

എക്സ് മീഡിയ കേസിൽ മുൻ ധനമന്ത്രി പി ചിദംബരത്തിന്റെ ജാമ്യ ഹർജിയിൽ സുപ്രീംകോടതി ഇന്ന് വിധി പറയും ജസ്റ്റിസ് ആർ ഭാനുമതി നേതൃത്വം നൽകുന്ന ബെഞ്ച് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് വാദം പൂർത്തിയാക്കി ജാമ്യ ഹർജി വിധി പറയാൻ മാറ്റിയത് ് ് രാജ്യത്തിന്റെ സാമ്പത്തികമേഖല അടുത്ത കാലത്തൊന്നും തിരിച്ചുവരാൻ സാധ്യതയില്ലെന്ന് മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ മണിശങ്കർ അയ്യർ പറഞ്ഞു കോഴിക്കോട് ഡി

സിയുടെ നേതൃത്വത്തിൽ വടകരയിൽ സംഘടിപ്പിച്ച ദേശീയ സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇതുവരെ കാണാത്ത തൊഴിലില്ലായ്മയ്ക്കാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നതെന്നും ഗ്രാമീണ സമ്പദ് വൃവസ്ഥയും വൃവസായമേഖലയും തകരുകയാണെന്നും മണിശങ്കർ അയ്യർ പറഞ്ഞു ഗോത്ര സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥ മുതലെടുത്ത് തീവ്ര ആശയങ്ങളുള്ളവർ പിടിമുറുക്കുന്ന സാഹചര്യം ഒഴിവാക്കേണ്ടതുണ്ടെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മാവേലിക്കരയിൽ പറഞ്ഞു

ആയിരത്തോളം കലാകാരൻമാരും അഞ്ഞൂറോളം പാരമ്പര്യ ശിൽപ്പികളും പങ്കെടുക്കുന്ന ഗദ്ദിക പത്ത് ദിവസം നീണ്ടു നിൽക്കും മഹാപ്രകളയം കഴിഞ്ഞ് ഒന്നര വർഷത്തിനകം തന്നെ കേരളത്തിന്റെ പുനർനിർമ്മാണം സാധ്യമായതായി മന്ത്രി ഇ

കേരള സ്റ്റേറ്റ് പ്രൊഡക്ടിവിറ്റി കൌൺസിലും എറണാകുളം ജില്ലാ ഭരണകൂടവും ഫാക്ടറീസ് ആന്റ് ബോയിലേഴ്സ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ ദുരന്ത നിവാരണ ശിൽപശാല കളമശേരിയിൽ ഉദ്ഘാടനം ചെയ്യു കയായിരുന്നു മന്ത്രി പ്രകൃതി ദുരന്ത ബാധിത പ്രദേശത്തെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കാൻ വിവിധോ ദ്ദേശ്യ അഭയ കേന്ദ്രത്തിന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ പറവൂർ വടക്കേക്കരയിൽ തറക്കല്ലിട്ടു ലോക ബാങ്കിന്റെ സഹായത്താൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹക രണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്

കോതമംഗലം മാർത്തോമ്മ ചെറിയ പള്ളിയുടെ നിയന്ത്രണം ഏറ്റെടുക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ഹൈക്കോടതി നിർദേശം നൽകി ആവശ്യമെങ്കിൽ പൊലിസ് സഹായം നൽകുന്നതിന് ജില്ലാ കലക്ടറോടും സ്ഥിതി ശാന്തമായാൽ ആരാധനയ്ക്കായി പള്ളി ഓർത്തഡോക്സ് വിഭാഗത്തിന് കൈമാറാനും കോടതി നിർദേശിച്ചു നാളത്തെ കേരളം ലഹരി മുക്ത നവ കേരളം എന്ന തീവ്രയജ്ഞ പരിപാടി യുടെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ സംഘടിപ്പിക്കുന്ന സിഗ്നേച്ചർ കാംപയിനിങ്ങിനും പ്രചാരണ വാഹന ജാഥയ്ക്കും ഇന്ന് തുടക്കം

തിരു വനന്തപുരത്ത് രാവിലെ മന്ത്രി ടി

ഓരോ ജില്ലയിലും മൂന്ന് ദിവസത്തെ പ്രചാരണ പരിപാടികളും ഒപ്പ് ശേഖരണവുമാണ് പ്രചാരണ ജാഥയിൽ ഉൾപ്പെ ടുത്തിയിരിക്കുന്നത്

വനിതാ വിഭാഗത്തിൽ ആതിഥേയരായ നേപ്പാളിനെയും പുരുഷവിഭാഗത്തിൽ പാകിസ്ഥാനെയുമാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത് വനിതകളുടെ ഹൈജം പിൽ മലയാളിതാരം എം

യു ചിത്ര വെങ്കലം നേടി

ഞായറാഴ്ച വരെ സബ്ജൂനിയർ ജൂനിയർ വിഭാഗം മത്സ രങ്ങളാണ് നടക്കുന്നത്

കണ്ണൂരിൽ നടക്കുന്ന നാലാമത് ദേശീയ സീനിയർ വനിത ബോക്സിങ് ചാമ്പ്യൻഷിപ്പിൽ നാല് മലയാളി താരങ്ങൾ രണ്ടാം റൌണ്ടിലെത്തി

രാജസ്ഥാനിലെ ഉദയപൂരിൽ നടന്ന കാഴ്ച പരിമിതരുടെ അന്തർ സംസ്ഥാന ക്രിക്കറ്റിൽ കേരളത്തിന് കിരീടം

കാലിക്കറ്റ് സർവകലാശാല ബോഡി ബിൽഡിംഗ് ചാംപ്യൻഷിപ്പിൽ ക്രൈസ്റ്റ് കോളജ് ഇരിങ്ങാലക്കുട ജേതാക്കളായി ക്രൈസ്റ്റ് കോളജിലെ വി എസ് അനന്ദുവിനെ മിസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയായി തെരഞ്ഞെടുത്തു കയറിന്റെയും പ്രകൃതിദത്ത നാരുകളുടേയും അന്തർദേശീയ മേളയായ കയർ കേരളയുടെ എട്ടാം പതിപ്പിന് ഇന്ന് ആലപ്പുഴയിൽ തുടക്കമാകും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉദ്ഘാടനം ചെയ്യും ഞായറാഴ്ച സമാപിക്കും

ടി തോമസ് എം

കടവന്ത്ര സ്വദേശി നൽകിയ സ്വകാര്യ ഹർജിയിലാണ് നടപടി ജ്ഞാനപീഠം ലഭിച്ച മഹാകവി അക്കിത്തത്തെ തപസ്യ കലാസാഹിത്യവേദി ഇന്ന് വൈകീട്ട് ആദരിക്കും

എസ് ശ്രീധരൻപിള്ള മുഖ്യാതിഥി ആയിരിക്കും പാലക്കാട് ജില്ലയിലെ മലമ്പുഴ സമഗ്ര കുടിവെള്ള പദ്ധതിക്ക് ജലസംഭരണി നിർമ്മിക്കാനായി സ്ഥലം ഏറ്റെടുത്ത് വാട്ടർ അതോറിറ്റിക്ക് കൈമാറാൻ പാലക്കാട് ജില്ലാ കലക്ടർക്ക് ഗവർണമെന്റ് നിർദ്ദേശം നൽകി

പോളയും ആഫ്രിക്കൻ പായലും വ്യാപിച്ച് നാശോൻമുഖമായ തിരുവനന്തപുരം വെള്ളായണി കായലിന്റെ ശുചീകരണം ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഇന്ന് ആരംഭിക്കും ജനപങ്കാളിത്തതോടെയും സന്നദ്ധ സംഘടനയായ സ്വസ്തി ഫൌണ്ടേഷന്റെയും നേതൃത്വത്തിൽ ആരംഭിച്ച ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കുന്നതിനാണ് ഗവൺമെന്റിന്റെ ഇടപെടൽ വൈദ്യുത ഉത്പാദനരംഗത്ത് സ്വയംപര്യാപ്തമാവുന്ന രാജ്യത്തെ ആദ്യ ജില്ലാ പഞ്ചായത്തായി കോഴിക്കോട് മാറുന്നതിന്റെ ഉദ്ഘാടനം ജനുവരിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കുമെന്ന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരി പറഞ്ഞു

സ്പിരിറ്റ് മാഹിമദ്യം വിദേശമദ്യം ചാരായ വാറ്റ് എന്നിവയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് പാരിതോഷികങ്ങൾ നൽകമെന്ന് എക്സൈസ് ഡപ്യൂട്ടി കമ്മീഷണർ അറിയിച്ചു ഇടുക്കി തൊടുപുഴ ഇടവെട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം ടി എം മുജീബിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി ജില്ലയിലെ നിരവധി പഞ്ചായത്തുകളുമായി പരസ്യബോർഡുകൾ സ്ഥാപിക്കുന്ന കരാറിൽ ഏർപ്പെ ട്ടതിനാണ് നടപടി

ഭാസ്കരൻ തിരുവനന്തപുരത്ത് അറി യിച്ചു

രണ്ട് ദിവസത്തെ ഇടുക്കി ജില്ലാ ക്ഷീര കർഷക സംഗമം ഇന്ന് പണിക്കൻകുടി യിൽ ആരംഭിക്കും മന്ത്രി കെ രാജു ഉദ്ഘാടനം ചെയ്യും ഇടുക്കി ജില്ല മണ്ണ് പര്യവേഷണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ നാളെ ലോക മണ്ണ് ദിനം ആചരിക്കും വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്തിന്റെയും കാർഷിക വിക സന കർഷക ക്ഷേമ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് പരിപാടി കോട്ടയം ജില്ലയിലെ എലിക്കുളം ഗ്രാമ പഞ്ചായത്തിലെ തരിശു നില നെൽകൃഷിയിലെ അരി എലിക്കുളം അരി എന്ന ബ്രാൻഡ് നാമത്തിൽ വിപണിയിലെത്തിക്കും മന്ത്രി വി എസ് സുനിൽകുമാർ മറ്റന്നാൾ ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു

കളക്ട്രേറ്റ് ഉൾപ്പെടെ ഓഫീസുകളിൽ ഭിന്നശേഷിക്കാരെ സഹായിക്കുന്ന തിനായി സൈൻ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിന് തൃശൂർ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചു ഓഫീസുകളുടെ ഫ്രണ്ട് ഓഫീസുകളിലായിരിക്കും ഭിന്നശേഷി സൌഹൃദ ജീവനക്കാരെ നിയമിക്കുകയെന്ന് ജില്ലാ കലക്ടർ എസ് ഷാനവാസ് അറിയിച്ചു കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് എയ്ഡഡ് സ്കൂളുകൾ സി

എമ്മിന്റെ നേതൃത്വത്തിൽ വെള്ളി ശനി ദിവസങ്ങലിൽ ശുചീകരിക്കുമെന്ന് ജില്ലാ സെക്ര ട്ടറി എം